ഡോളറിന്റേതാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രൂപീകരിക്കുമെന്ന് ക്യ്ന്ദ്രമ്പ്രി നിധിൻ ഗഡ്കരി

കേരളത്തിൽ കേന്ദ്രസംഘത്തിന്റെ പരൃടനം ഇന്നു മുതൽ

ആഗോള സാലറി ചലഞ്ചിൽ പങ്കെടുക്കാൻ മുഖൃമന്ത്രി പിണറായി വിജയൻ അമേരിക്കൻ മലയാളികളോട് അഭ്യർഥിച്ചു

ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്റർനാഷണൽ കൺവൻഷൻ ആൻഡ് എക്സ്പോ സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഉൽപ്പാദക കാർഷിക മേഖലകൾക്ക് ഒരു ലക്ഷം കോടി ഡോളർ വീതം സമ്പദ്വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യാനാകും ഐടിയിലും റീട്ടെയിൽ മേഖലയിലും ഉയർന്ന തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എട്ട് ശതമാനം വളർച്ചയിലേക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഇന്റർനാഷണൽ കൺവൻഷൻ ആൻഡ് എക്സ്പോ സെന്ററിലൂടെ അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഒരു ദിവസത്തെ സന്ദർശനത്തിൽ താൽച്ചറിലെ വള നിർമ്മാണ പ്പാന്റും ഛാർസുഗുഡ വിമാനത്താവളവും അടക്കമുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ദേശീയ താപോർജ്ജ നിലയത്തിന്റെ ഖനികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും

വ്യക്തികൾക്ക് വിവിധ സംസ്ഥാനങ്ങൾ വ്യത്യസ്ത ഡ്രൈവിങ് ലൈസൻസുകൾ അനുവദിക്കുന്ന സാഹചര്യമാണ് രാജ്യങ്ങളുടെതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഡ്രൈവിംഗിൽ നൈപുണ്യം നേടിയവരെ ഉപയോഗിച്ച് ഈ വിടവ് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ഡ്രൈവർ രഹിത വാഹനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു പ്രതിവർഷം ഒന്നരലക്ഷം പേരാണ് റോഡപകടങ്ങളിലൂടെ രാജ്യത്ത് മരണമടയുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി

ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കും ഉപരാഷ്ട്രപതിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ ഈ രാഷ്ട്രങ്ങളുമായി നിരവധി കരാറുകളും ഒപ്പുവച്ചിട്ടുണ്ട്

വിമാനത്തിന്റെ ക്യാബിനകത്ത് വായുസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള സ്വിച്ച് ഓൺ ചെയ്യാൻ ജെറ്റ് എയർവേസിലെ ജോലിക്കാർ മറന്നതിനെ തുടർന്ന് യാത്രക്കാരുടെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തംവാർന്ന സംഭവത്തെ തുടർന്നാണിത് വിമാന അപകടങ്ങൾ പരിശോധിക്കുന്ന ബ്യൂറോ ജെറ്റ് എയർവെയ്സിൽ നടന്ന സംഭവം അന്വേഷിക്കും ഇതിന് പുറമെ സ്വതന്ത്ര അന്വേഷണം നടത്താനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കേന്ദ്ര സംഘം ഇന്ന് മുതൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും

അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രളയദുരിതം സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര സംഘത്തെ ധരിപ്പിക്കും

കേന്ദ്രഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതായി ധനമന്ത്രി ടി

തോമസ് ഐസക് ന്യൂഡൽഹിയിൽ അറിയിച്ചു

എന്നാൽ ജി

ടി സോഫ്റ്റ് വെയറിൽ ഇതിനുവേണ്ട മാറ്റം വരുത്തുന്നത് നൂലാമാലകൾ സൃഷ്ടിച്ചേക്കാം ഈ സാഹചര്യത്തിലാണ് പ്രകൃതിക്ഷോഭ്യ പ്രൂനരധിവാസ പ്രവർത്തനങ്ങൾക്കായി എല്ലാ സംസ്ഫൂനങ്ങളിലും നിശ്ചിത ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെട്ടുത്തുക എന്ന നിർദ്ദേശം ഉയർന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ന്യൂയോർക്കിലെ റോക്ക് ലാന്റ് കൌണ്ടിയിൽ അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിനായി ഒരു മാസ ശമ്പളം കൊടുക്കാൻ കഴിയുന്നവർ ആഗോള സാലറി ചലഞ്ചിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

അമേരിക്കയിൽ ചികിൽസ പൂർത്തിയാക്കിയശേഷം ന്യൂയോർക്കിൽ ആദ്യ പൊതു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ

വാതകപ്പോർച്ച സംശയിക്കുന്നതിനാൽ സുരക്ഷ ശക്തമായിക്കിയിട്ടുണ്ട് അഗ്നിരക്ഷാസേനയും പൊലീസും സ്ഥലത്തെത്തി വാഹനം നീക്കാനുള്ള ശ്രമം തുടരുകയാണ്

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും വൈകിട്ട് അഞ്ച് മണി മുതലാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ നേരിടും

ചർച്ചയ്ക്കുള്ള പാകിസ്ഥാന്റെ ക്ഷണം അംഗീകരിച്ച ഇന്ത്യൻ നടപടി ഇരു രാജ്യത്തെയും ജനങ്ങൾക്ക് ആശ്വാസകരമാണെന്ന് അമേരിക്കൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു

മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്

ഗുവാഹത്തിയിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത്

അടിയന്തര ധനസഹായവിതരണം കോഴിക്കോട് വയനാട് കണ്ണൂർ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ പൂർത്തിയായിട്ടുണ്ട്

പുതുതായി ലഭിച്ചു അപേക്ഷകളിലാണ് സഹായം നൽകാൻ ഏറെയും ബാക്കിയുള്ളത്

നൂറോളം അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് കുടുംബശ്രീ മുഖേന വീട്ടമ്മമാർക്ക് ഒരു ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുന്നതിന്റെ ഭാഗമായി ഒരു ലക്ഷത്തിലേറെ അപേക്ഷകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇതുൾപ്പെടെ രണ്ട് ലക്ഷം അപേക്ഷകളിൽ ഒരാഴ്ചക്കുക്ക് നടപടി പൂർത്തിയാക്കും